ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം

എം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറ്ക്കി് യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥി നിർണ്ണിൽ ഉടൻ പൂർത്തിയാകും

തിരത് സിംഗ് റാവത്ത് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാകും

പേർക്ക് കോവിഡ് വാക്സിൻ നൽകി

സഭാ നടപടികൾ നിർത്തിവച്ചു ലോക്സഭയിൽ ഇന്ന് സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിച്ചു കർഷക വിഷയം സഭ ചർച്ച ചെയ്ത് സമവായത്തിലെത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കോൺഗ്രസ് ഡി എം കെ തൃണമൂൽ തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളിൽ പെട്ട അംഗങ്ങൾ സർക്കാരിനെതിരെ മുദ്രാവാകൃമുയർത്തി അംഗങ്ങൾ സ്ട്രീറ്റുകുളിലേക്ക് മടങ്ങണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപ്രിക്ഷ്മം വഴങ്ങിയില്ല

കർഷകർട്ടെ പ്രശ്നങ്ങൾ സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ കക്ഷി നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു വിഷയം ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യപാദത്തിൽ ചർച്ച ചെയ്തതാണെന്ന് രാജ്യസഭ അദ്ധ്യക്ഷൻ എം

തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി മുദ്രാവാക്യം ഉയർത്തുകയായിരുന്നു

വിജയരാഘവൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്

മത്സരിക്കുന്ന പ്രമുഖരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ കെ കെ ശൈലജ ടി പി രാമകൃഷ്ണൻ എ

മൊയ്തീൻ കടകംപള്ളി സുരേന്ദ്രൻ കെ ടി ജലീൽ എം

മണി ജെ മെഴ്സിക്കുട്ടിയമ്മ എന്നിവരും എം വി ഗോവിന്ദൻ കെ രാധാകൃഷ്ണൻ പി രാജീവ് കെ എൻ ബാലഗോപാൽ വി കെ പ്രശാന്ത് വീണാ ജോർജ് എം സ്വരാജ് എം മുകേഷ് യു

പാർട്ടി സ്ഥാനാർത്ഥി പി

മാഹി നിയോജകമണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന ഹരിദാസൻ മാസ്റ്റർക്ക് സിപിഎം പിന്തുണ നൽകും ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മലപ്പുറം മണ്ഡലത്തിൽ എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി

പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയാണ് സ്ഥാനാർത്ഥിപട്ടിക തയ്യാറാക്കിയതെന്ന് ശ്രീ

ഡി എഫിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിച്ചേക്കുമെന്ന് എ ഐ

സി ജനറൽ സെക്രട്ടറി കെ

പരാതിയില്ലാത്ത പട്ടികയായിരിക്കും പുറത്തിറക്കുകയെന്ന് മുതിർന്ന പാർട്ടി നേതാവ് താരിഖ് അൻവർ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പാർട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേരുന്നുണ്ട്

ഡി എ യിൽ ബിജെപി സ്ഥാനാർത്ഥി നിർണ്ണയം അന്തിമഘട്ടത്തിലായി പട്ടിക നാളെ പ്രഖ്യാപിക്കാനിടയുണ്ട് ബിഡിജെഎസ് ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പാർട്ടി അദ്ധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പുറത്തിറക്കി

പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി വെള്ളിയാഴ്ചയാണ്

മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ കോൺഗ്രസ് ്സംസ്ഥാന പ്രസിഡന്റ് റിപ്പുൻ ബോറ അസം ഗണപരിഷത്ത് നേതാവ് അതുൽ ബോറ തുടങ്ങിയ പ്രമുഖർ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്

മുഖ്യ മന്ത്രി മമതാ ബാനർജി ഇന്ന് പത്രിക സമർപ്പിക്കും

സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്ത്നുങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് കമ്മീഷന്റെ നിർദ്ദേശം പക്കർ ്നിരഞ്ജൻ പാണ്ഡേയെ ഡിജിപി ആയി നിയമിക്കാൻ തെരുഐഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു

ഇന്ന് ചേർന്ന ബി ജെ

ഇന്നലെ രാജി വച്ച മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്താണ് യോഗത്തിൽ തീരത്ത് സിംഗ് റാവത്തിന്റെ പേര് നിർദ്ദേശിച്ചത് പൌരിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ് അദ്ദേഹം

പ്രതിപക്ഷ നേതാവ് ഭൂപേന്ദർ സിങ്ങ് ഹൂഡയാണ് പ്രമേയം അവതരിപ്പിച്ചത്

ഒരു കോടി ഒമ്പത് ലക്ഷത്തിലധികം പേർ ഇതി നകം രോഗമുക്തി നേടിയിട്ടുണ്ട്

എം ആർ അറിയിച്ചു ന്യൂസ് ഡസ്ക് ആകാശവാണി

വെല്ലൂരിലെ സുവർണ്ണ ക്ഷേത്രവും രാഷ്ട്രപതി സന്ദർശിക്കുന്നുണ്ട്

ഇന്ത്യ ജപ്പാൻ നയതന്ത്ര പങ്കാളിത്തവും ഇരുവർക്കുമിടയിൽ ചർച്ചയായി

തിളക്കി പ്പോൾ മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽപാത എന്ന് പ്രധാന മന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി

വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ സേനാംഗങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചു സിഐഎസ്എഫ് നൽകുന്ന വിലമതിക്കാനാവാത്ത സേവനത്തിന് രാജ്യം കടപ്പെട്ടിരിക്കുന്നതായി ഉപരാഷ്ട്രപതി എം

ദേശീയസുരക്ഷയും പുരോഗതിയും ഉറപ്പു വരുത്തുന്ന തിൽ സിഐഎസ്എഫിന്റെ പങ്ക് വിലപിടിച്ചതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു